നിയമസഭാ തെരഞ്ഞെടുപ്പിന് എട്ട് ദിവസം ശേഷിക്കെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പ്രചാരണം ഊർജ്ജിതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ ഇന്ന് രണ്ട് റാലികളെ അഭിസംബോധന ചെയ്യും

സ്ഥാപക വാഴ്ത്തപ്പെട്ട മറിയം ത്രേസൃയെ ഇന്ന് വിശുദ്ധയായി പ്രഖ്യാപിക്കും

തോൽവിയിലേക്ക്

വിവിധ പാർട്ടിക്കളുടെ പ്രമുഖ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രിച്ചാരണത്തിനെത്തും ഹരിയാനയിൽ ബി ജെ

യുടെ പ്രകടന് പത്രിക സങ്കൽപ്പത്ര പുറത്തിറക്കി കൂടുതൽവിവരങ്ങളുമായി ലിൻസ

ദേവേന്ദ്ര ഫഡ്നവീസ് ഗവൺമെന്റിന്റെ തിളക്കമാർന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ

എ ഗവൺമെന്റ് ജനവിധി തേടുന്നതെന്ന് പ്രധാനമന്ത്രി ട്ടിറ്ററിൽ കുറിച്ചു കേന്ദ്ര ആഭൃന്തര മന്ത്രിയും ബി ജെ പിദേശീയ അധ്യക്ഷനുമായ അമിത്ഷാ ഇന്ന് വിവിധ റാലികളിൽ പങ്കെടുക്കും

ന്യൂസ്ഡെസ്ക്ആകാശവാണി

ഇന്ത്യയുടെ വൈവിധ്യവും ദേശീയ ഐകൃവും ഉയർത്തിക്കാട്ടുന്നതിന് ശ്രീ മോദി പ്രത്യേക താൽപ്പര്യമെടുത്ത് ആവിഷ്ക്കരിച്ച പരിപാടിയാണിത് വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ സാംസ്കാരികമായ അറിവുകൾ പങ്കുവയ്ക്കാനാണ് ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ പ്രാദേശിക സാംസ്കാരിക വൈവിധ്യം ആഘോഷിക്കാൻ ഇത് വഴിയൊരുക്കും

വിമാനത്താവളത്തിൽ സിയറ ലിയോൺ വൈസ് പ്രസിഡന്റ് ഡോ

മറ്റ്രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ വളർച്ചാനിരക്ക് കൂടുതലാണെന്ന് ഇന്നലെ വാഷിംഗ്ടണിൽ അദ്ദേഹം പി ടി

ലോകബാങ്കിന്റെ ആഗോളതലത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ നിക്ഷേപം നടത്താൻ പലരും മടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

നിർദ്ദിഷ്ട സേവനത്തിലൂടെ ഉപഗ്രഹ അധിഷ്ഠിത സ്പ്റ്റീധാനം വഴി ശ്രീനഗറിലെ എല്ലാ മെഡിക്കൽ സ്ഥാപന്ങ്ങള്ളേയും പരസ്പരം ബന്ധിപ്പിക്കാനാകും ടെലി മെഡിസിൻ സേവനങ്ങൾ നടപ്പാക്കാൻ ബന്ധപ്പെട്ട ഏജൻസികളുമായി ചർച്ച തുടരുകയാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു

ഷേർ ഇ കാശ്മീർ ഭാഗമായാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്മെഡിക്കൽ സയൻസസ് ശ്രീനഗർ മെഡിക്കൽകോളേജ് എന്നിവിടങ്ങളിലെ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും പദ്ധതിയിൽ ഉൾപ്പെടുന്നു

നവീകരിക്കാനാണ് പദ്ധതിയെന്ന് ധന്മമിന്ത്യാല്യം അറിയിച്ചു

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ സഹകരണം ശക്തമാക്കാൻ പ്രമുഖ നേതാക്കളുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഇരുവരും എത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഡൽഹിയും മുംബൈയും സന്ദർശിക്കുന്ന രാജ ദമ്പതികൾ കേരളത്തിലുമെത്തും

കേന്ദ്ര സഹമന്ത്രി സാദ്വി നിരഞ്ജൻ ജ്യോതി ഇന്ത്യാഗേറ്റ് മൈതാനത്ത് മേള ഇന്നലെ ഉദ്ഘാടനം ചെയ്തു

ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ സ്വയംസഹായസംഘങ്ങൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ തെളിവാണ് ഈ മേളയെന്ന് ശ്രീമതി സാദ്വി നിരഞ്ജൻ ജ്യോതി പറഞ്ഞു

ഡൽഹിയിലും പ്രാന്ത പ്രദേശങ്ങളിലും അന്തരീക്ഷ മലിനീകരണം ക്രമാതീതമായി ഉയരുന്ന സാഹചരൃത്തിൽ സുപ്രീംകോടതി ഇടപെട്ടാണ് ജനറേറ്ററുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്

മലയാളത്തിലും പ്രാർത്ഥനയും ഗാനാർച്ചനയും ഉണ്ടാകും മറിയം ത്രേസ്യയുടെ മാതൃരൂപതയിൽ ഇരിങ്ങാലക്കുട മെത്രാൻ സഹകാർമ്മിക സ്ഥാനത്ത് ഉണ്ടാകും ചടങ്ങിന് മുന്നോടിയായി കേന്ദ്ര സഹമന്ത്രി വി

പ്രകടന പത്രികയിൽ പറഞ്ഞ ക്കാര്യങ്ങൾ മൂന്നരവർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത നടപ്പാക്കീയ്ന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൊച്ചിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഡി എഫ് ന് വേണ്ടി പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർ പ്രചാരണരംഗത്ത് സജീവമാണ് മുതിർന്ന നേതാവ് എ

ജെ പിക്ക് വേണ്ടി വർക്കിംഗ് പ്രസിഡന്റ് ജെ

നഡ്സ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിനെത്തും

ഇന്ത്യയ്ക്കായി ആർ അശ്വൻ രണ്ടും ഉമേഷ് യാദവ് ഇശാന്ത് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റും നേടി

കളി തീര്ാുൻ നാളെ കൂടി ശേഷിക്കേ ഇന്ത്യ തുടർച്ചയായ രണ്ടാം ജയ്ത്തിന് അരികിലാണ്

ഇന്നലെ നടന്ന സെമിഫൈനലിൽ സ്വീഡന്റെ ഫെലിക്സ് ബുറെസ്റ്റെദിനെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യസെൻ പുരുഷ സിംഗിൾസ് ഫൈനലിൽ കടന്നത്

ഇന്നലെ കെയ്റോയിൽ അറബ് രാജൃങ്ങളിലെ വിദേശക്ടര്യ്യ മന്ത്രിമാർ പങ്കെടുത്ത അടിയന്തിര യോഗമാണ് സംഭവുത്തെ അപലപിച്ചത്

ആയിരക്കണക്കിന് പേരെ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്

മേഖലയിലെ വൈദ്യുതി വിതരണവും ഗതാഗത സൌകര്യവും തടസ്സപ്പെട്ടിരിക്കുകയാണ്